ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി

സിസ്റ്റർ അഭയകൊലക്കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി

ഈ വർഷത്തെ ഇന്ത്യ അന്താരാഷ്ട്ര ശാസ് ത്രോത്സവത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകത്തിനൊപ്പം ഇന്ത്യയിലെ ശാസ്ത്രസമൂഹവും വളരേണ്ടതുണ്ട് രാജ്യത്തെ ഗവേഷണ മേഖലയിലെ സാഹചര്യം മെച്ചപ്പെടുത്താനും ഏതുതരം വെല്ലുവിളി നേരിടാനും സർക്കാർ തയ്യാറാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ബഹിരാകാശ മേഖലയിലെ നേട്ടങ്ങൾ പോലെ ആഴക്കടൽ ഗവേഷണത്തിലും വിജയം കൈവരിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മന്ത്രി ഹർഷവർദ്ധനും ചടങ്ങിനെ അഭിസംബോധന ചെയ്തു

അലിഗഡ് മുസ്ത്രീം സർവകലാശാലയിലെ പ്പൂശ്താബ്ദി ആഘോഷം വിർചലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഐ ഐ

എല്ലാവർക്കു മൊപ്പം എല്ലാവരുടെയും വികസനം എന്നതിലൂടെ ഓരോരുത്തർ ക്കും അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള അവസരം കിട്ടുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

രാജ്യത്തെ സ്വാതന്ത്യസമരസേനാനികളെക്കുറിച്ച് ഗവേഷണം നടത്തണമെന്നും പ്രധാനമന്ത്രി അലിഡഡ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു ശതാബ്ദി ആഘോഷ സ്റ്റാമ്പിന്റെ പ്രകാശനവും പ്രധാനമന്ത്രി നിർവഹിച്ചു ന്യൂസ് ഡസ്ക് ആകാശവാണി

യോഗത്തിൽ ധനകാര്യ സെക്രട്ടറി ഡോ

പാണ്ഡെ സാമ്പത്തിക കാര്യ സെക്രട്ടറി തരുൺ ബജാജ് ചീഫ് ഇക്കണോമിക് അഡൈസർ കെ

സുബ്രഹ്മണ്യൻ എന്നിവരും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു

അമേരിക്കൻ പരമോന്നത സൈനിക ബഹുമതിയായ ലീജിയൻ ഓഫ് മെരിറ്റ് സമ്മാനിച്ചതിനെ സ്വാഗതം ചെയ്യുക യായിരുന്നു അദ്ദേഹം

ഇതിനായി ജനങ്ങളുടെ അതുല്യമായ വിഭവശേഷി പ്രയോജനപ്പെടുത്താൻ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലൂടെ കഴിയുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന്റെ തെളിവാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ച പുരസ്കാരമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്വിറ്ററിൽ കുറിച്ചു

ബ്രിട്ടനിൽ നിന്നെത്തുന്ന യാത്രക്കാരെ ആർ

ആർ പരിശോധനക്ക് വിധേയമാക്കണമെന്ന് മന്ത്രാല യം വിവിധ സംസ്ഥാനങ്ങളിലെ വിമാനത്താവള അധികൃതർക്ക് നിർദേശം നൽകി

സി എം

പാർലമെന്റ് ഈയിടെ പാസ്സാക്കിയ കാർഷിക നിയമങ്ങൾ ചർച്ച ചെയ്യാനാണ് സമ്മേളനം തീരുമാനിച്ചിരുന്നത് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന പ്രമേയത്തിന്മേൽ ഒരു മണിക്കൂർ ചർച്ചയാണ് തീരുമാനിച്ചിരുന്നത് സമ്മേളനത്തിന് ഗവർണ്ണർ അനുമതി നൽകാതിരുന്നത് നിർഭാഗ്യകരമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു

തോമസ് എം കോട്ടൂർ സിസ്റ്റർ സെഫി എസ്സിവർ കുറ്റക്കാരാണെന്ന് സി ബി ഐ

കേസിൽ കൊലക്കുറ്റം തെളീഞ്ഞതായി സി ബി ഐ കോടതി കണ്ടെത്തി കേസിലെ ശിക്ഷാറിപ്പിധി നാളെ പ്രസ്താവിക്കും

പ്രത്യേക സി ബി ഐ കോടതി ജഡ്ജി കെ സ്ത്രനിൽകുമാറാണ് വിധി പറയുന്നത്

് ജില്ലയിലെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള വിവിധ സാംസ്കാരിക സാമൂഹിക പ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഉച്ചക്ക് ശേഷം പത്തനംതിട്ട ജില്ലയിലും അദ്ദേഹം പര്യടനം നടത്തി

ബിഎസ്എഫ് ഡയറക്ടർ ജനറൽ രാകേഷ് അസ്താന ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് തലവൻ മേജർ ജനറൽ എം

ഷാഫി ദീനുൽ ഇസ്ലാമുമായി ചർച്ച നടത്തും അതിർത്തി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക അതിർത്തി രക്ഷാസേന കൾ തമ്മിലുള്ള ഏകോപനം സാധ്യമാക്കുക എന്നിവ ചർച്ചാവിഷയമാകും

സൌജന്യ അപകട ഇൻഷുറൻസ് ഉന്നതൃ വിദ്യർഭ്യാസ ഇൻഷുറൻസ് പെൺകുട്ടി കളുടെ വിവാഹ ്യജ്ജൻഷുറൻസ് എന്നിവ സേവനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ല്ഫ്റ്റനന്റ് ജനറൽ രവീൺ ഖോസ്ല ബാങ്ക് ഓഫ് ് ബറോഡ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിക്രമാദിത്യ സിങ് എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടു